ഡോണാൾഡ് ട്രംപ് നാളെ കൃന്തൃയിലെത്തും അഹമ്മദാബാദിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി

കൊറോണ വൈറ്സ് ബാധയുടെ പശ്ചാത്തലത്തിൽ ന് ജനങ്ങൾ സിംഗപ്പൂരിലേക്കുള്ള അപ്രധാന യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം

ആഗോള വെല്ലുവിളി നിരീക്ഷണവും നയ സഹകരണവും വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ

ജി പിയുടെ ജാഗ്രതാ നിർദ്ദേശം

ഐ ആർ ഡി

ന്യൂസ് പി എം

നമസ്തേ ട്രംപ് പരിപാടിയ്ക്കായി ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങി പരിപാടിയിൽ ഒരു ലക്ഷത്തിലധികം പേരെ ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപും അഭിസംബോധന ചെയ്യും

അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യാ സന്ദർശനത്തീർ ് കോൺഗ്രസ് അസന്തുഷ്ടരാണെന്നും പാർട്ടി വക്താവ് സമ്പിത് പത്ര ആരോപിച്ചു

പ്രഥമ സർവ്വകലാശാലതല ്ട് ഖേലോ ഇന്ത്യ കായിക മത്സരങ്ങൾ ഒഡീഷയിലെ ഘട്ടക്കിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കുറ്റവാളിയായ വിനയ്കുമാർ ശർമ്മയുടെ ഹർജിയാണ് അഡീഷണൽ സെഷൻ ജഡ്ജി ധർമ്മേന്ദർ റാണ നിരസിച്ചത് പ്രതിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും വലതു കൈയ്യിൽ ഒടിവുണ്ടെന്നും മാനസിക രോഗബാധയിൽ ബുദ്ധിമുട്ടുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു

നവി മുംബൈയിൽ ദേശീയ്ക്കപ്പാതുജനാരോഗ്യ പരിശീലന ഗവേഷണ സ്ഥാപനത്തിന്റെ പുതിയ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ലോകാരോഗ്യ സംഘടനയുടെ സഹായത്തോടെ മികച്ച ആരോഗൃ നിരീക്ഷണ സംവിധാനമൊരുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു

ശ്രീനഗറിൽ ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്

സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ബിഐഎസ് മുൻ ഡയറക്ടർ അമർ കൃഷ്ണ ഘോഷിനാണ് മുംബൈയിലെ സിബിഐ കോടതി ശിക്ഷ വിധിച്ചത്

അറുപതിനായിരം പേർക്കാണ് രാജ്യത്ത് കൊറോണ ബാധിച്ചത് വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ

ആഗോളതലത്തിൽ പടർന്നുപിടിക്കുന്ന കൊറോണ വൈറസിനെ നിയന്ത്രിക്കാനുള്ള അവസരങ്ങൾ ചുരുങ്ങിവരുന്നെന്ന് ലോകാരോഗൃ സംഘടനയും അറിയിച്ചു അവസരങ്ങളുടെ വാതിൽ പൂർണമായി അടയുന്നതിനുമുമ്പ് ലോകരാജൃങ്ങൾ നടപടിയെടുക്കണമെന്നും സംഘടന മുന്നറിയിപ്പു നൽകി

ന്യൂസ് ഡെസ്ക് ആക്ടാശുവാണി

നിപ വൈറസ് വന്ന സമയത്തും ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ രാജ്യത്തിനു സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു

വർദ്ധിച്ചു വരുന്ന അസമത്വം ആഗോള പരമായി തലമുറകൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതായും അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്താൻ നയപരമായ സഹകരണം ആവശ്യമാണെന്നും അവർ പറഞ്ഞു

സ്കൂളുകളിൽ സ്ഥാപിതമായ അടൽ തിങ്കറിങ്ങ് ലാബുകളിലൂടെ കുട്ടികൾക്ക് മാർഗനിർദേശം നൽകി യുവജനങ്ങൾക്ക് മൽസരബുദ്ധിയോടെ പുതിയ ചിന്തകൾക്ക് പ്രവൃത്തി തലത്തിൽ ആവിഷ്കാരം നൽകാനും അടൽ ഇന്നവേഷൻ മിഷന് സാധിച്ചു

അവിനാശി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ജില്ലാ പോലീസ് മേധാവിമാരും ട്രാഫിക് എസ്

ഐ ജിമാർ സോണൽ ഐ

ഡി ജി പി എന്നിവരും ഇനിമുതൽ നിശ്ചിത ഇടവേളകളിൽ ഹൈവേ പോലീസ് വാഹനങ്ങളുടെ പ്രവർത്തനം നേരിട്ടു പരിശോധിച്ച് വിലയിരുത്തണമെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദേശിച്ചു

ഗതാഗത മന്ത്രി എ രൂകൃശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ഭാവിയിൽ അപകടങ്ങൾ തടയാൻ ആവശ്യമായ നടപടികൾ ചർച്ചചെയ്യും

സൂര്യാഘാത ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണമെന്ന് ആരോഗ്യ മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു